കേരളം മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ഇന്ന് ആശയവിനിമയം നടത്തും ചർച്ച വൈകിട്ട് മൂന്നിന് വീഡിയോ കോൺഫറൻസിംഗ്ക് വഴി

രണ്ടാം എൻ

എ സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ബിജെപി വെർച്ചൽ റാലി ഇന്ന് കേരളത്തിൽ ദേശീയ അദ്ധ്യക്ഷൻ ജെ

നദ്ദ ഉദ്ഘാടനം ചെയ്യും

ജമ്മുകശ്മീരിൽ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു

മഹാമാരിയെ നേരിടുന്നതിന് രാജ്യം സ്പീകരിച്ചു നടപടികളും പ്രതിരോധ പ്രവർത്തനങ്ങളും ശനിയാഴ്ച്ചപ്രപ്രധാനമന്ത്രി ഉന്നതതലയോഗത്തിൽ വിലയിരുത്തിയിരുന്നു താജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ കോറോണ ബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ച അതീവ പ്രാധാന്യമർഹിക്കുന്നു മാർച്ചിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം ഇത് ആറാം തവണയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത്

രാജീവ്ഗാന്ധി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലുള്ള അദ്ദേഹത്തിന്റെ കോവിഡ് പരിശോധനാഫലം ലഭ്യമായിട്ടില്ല ഡൽഹിയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത നിരവധി യോഗങ്ങളിൽ ശ്രീ സത്യേന്ദ്ര ജെയിൻ പങ്കെടുത്തിരുന്നു

വൈറസിനെതിരെ ശരീരത്തിൽ രൂപം കൊണ്ട ആന്റിബോഡികളെ കണ്ടെത്തുന്നതിനായിരുന്നു റാപ്പിഡ് ആന്റി ബോഡി ടെസ്റ്റ് ഇതിനു പകരം വൈറൽ ആന്റിജനുകളെ കണ്ടെത്തുന്നതിനാണ് ആന്റിജൻ ടെസ്റ്റ്

ഈ ടെസ്റ്റ് നെഗറ്റീവാകുന്നവർക്ക് പിന്നീട് ആർ

ആരോഗ്യ പ്രവർത്തകർക്കു കൂടി രോഗം സ്ഥിരീകരിച്ചതോടുകൂടി ജില്ലയിൽ പ്പ്തിരോധ നടപടികൾ ഊർജ്ജിതമാക്കി

എ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ബിജെപി വെർച്ചൽ റാലി ഇന്ന് കേരളത്തിൽ ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ ജെ

കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഡിജിറ്റലായി റാലി സംഘടിപ്പിക്കുന്നത്

അതിനിടെ കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്കടുത്ത് പാക്സേന ഇന്നും വെടിനിർത്തൽ കരാർലംഘനം നടത്തി ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചു